നയിക്കാൻ തയ്യാറായി ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ

മുഖ്യമന്ത്രി പിണറായി വിജയൻ

പോരാട്ടം ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ പ്രധാനമന്ത്രി തുടർച്ചയായ രണ്ടാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ശ്രീ

ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രിയ്ക്കും മറ്റ് കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും അഞ്ചുവർഷത്തെ ഭരണത്തിനു ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ബി ജെ

ബംഗ്ലാദേശ് ശ്രീലങ്ക കിർഗിസ് റിപ്പബ്ലിക് മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരും തായ്ലന്റിന്റെ പ്രത്യേക പ്രതിനിധിയും ചടങ്ങിൽ സംബന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും ഒട്ടേറെ നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗ പ്രമുഖരും മാധ്യമ പ്രവർത്തകരും ചടങ്ങിന് സാക്ഷിയാകും

മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പ്പേയിയുടെ സമാധിസ്ഥലമായ സദൈവ് അടലിലും ശ്രീ

വീരമൃത്യു വരിച്ച സൈനിക്കരോടുള്ള ആദരസൂചകമായി പ്രധാനമന്ത്രി ദേശീയ യുദ്ധ്സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തി

ജെ പി ദേശ്വീയ് അധ്യക്ഷൻ അമിത് ഷാ മറ്റ് മുതിർന്ന ബി ജെ പി നേത്ാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിയ്ക്കൊപ്പം സദൈവ് അടലിൽ എത്തിയിരുന്നു

റെയിൻബോയിലും ശ്രോതാക്കൾക്ക് തൽസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് കേൾക്കാനാകും

അടുത്തമാസം ഒന്നുമുതൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനവിലയിൽ ഒരു ശതമാനം സെസ് പിരിക്കാനായിരുന്നു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത് ഇപ്പോഴത്തെ രീതിയിൽ സെസ് നടപ്പാക്കിയാൽ അതിനുമേൽ നികുതി നൽകേണ്ടി വരും പ്രളയ സെസിന് നികുതി ബാധകമല്ലെന്ന് ജി എസ്ട്രടി കൌൺസിൽ വിജ്ഞാപനം പുറത്തിറക്കേണ്ടതിനാല്പാണ് നിലവിലെ തീരുമാനം മാറ്റി ജൂലൈ ഒന്നിലേക്ക് ആക്കിയത് പ്രളയ സെസ് കൂട്ടധർണ ജനങ്ങളുടെ മേൽ പ്രളയ് സെസ് ഏർപ്പെടുത്തുന്നതു വഴി കേരള ഗവൺമെന്റ് വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ഇതിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പത്തനംതിട്ട ഡി സി

ഇതിന്റെ ഭാഗമായി ജില്ലയിലെ ആറ് താലൂക്ക് ഓഫീസുകൾക്കു മുമ്പിൽ ശനിയാഴ്ച കൂട്ടധർണ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കോട്ട്യം പാലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ശ്രീ ജോസ് കെ

സംസ്ഥാന കമ്മിറ്റി വിളിച്ചുചേർത്ത് ചെയർമാനെ തിരഞ്ഞെടുക്കണ്ഠമെന്നും ചില കേന്ദ്രങ്ങൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയിിണ്ണും അദ്ദേഹം വ്യക്തമാക്കി

മാണി കെട്ടിപ്പടൂത്ത് പാർട്ടിയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും ജ്യോസ് കെ മാണി പറഞ്ഞു

ഡി എഫ് മുഴുവൻ സീറ്റുകളും നേടുമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ലോക്സഭ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ മുന്നേറ്റത്തിൽ നന്ദി പറയുന്നതിന് മലപ്പുറത്ത് മുസ്തീംലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹ്ബ്തങ്ങളെ കാണാനെത്തിയതായിരുന്നു അദ്ദേഹം

ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ശ്രീലങ്കയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഉപവാസം അവസാനിപ്പിച്ചു

നാരായണക്കൂറുപ്പ് നാരാങ്ങാനീര് നൽകിയാണ് യജ്ഞം അവസാനിപ്പിച്ചത്

സ്ത്രീകളുടെ അവകാശ സംരക്ഷണവിഷയത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും അതിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഗ്ഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്നതിനെ ധാർഷ്ട്യമെന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും യോഗം പ്ർച്ച ചെയ്യുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പ്രറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിങ്ങ് ്യിൃന്തങ്ങളേയും വി വി പാറ്റ് മെഷീനുകളേയും കുറിച്ച് ഉയർന്ന ആരോപണങ്ങളും യോഗത്തിൽ ചർച്ചാവിഷയമാകും

ഈ ലിസ്റ്റ് പ്രകാരം പ്രവേശനം ഇന്നും നാളെയും മറ്റെന്നാളുമായി നടക്കും താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കില്ലെന്നും അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് സ്കൂളുകളിൽ ഫീസടച്ച് സ്ഥിര പ്രവേശനം നേടണമെന്നും ഹയർ സെക്കന്ററി ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു

സ്പോർട്സ് കാട്ടയുടെ രണ്ടാം സ്പെഷ്യൽ അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീ കുടുംബശ്രീ അയൽക്കൂട്ട വർഷാചരണത്തിന്റെ ഭാഗമായി ത്രിതല യൂണിറ്റുകളുടെ നടത്തിപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ഗ്രേഡിങ്ങും ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു

ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടം എന്നീ യൂണിറ്റുകളെ വിലയിരുത്തി കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ ശാക്തീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

ഇംഗ്ലണ്ടിൽ നടക്കുന്ന കായിക മാമാങ്കത്തെ വിലയിരുത്തുന്നു ആകാശവാണി പ്രതിനിധി സുരേഷ് ഇടപ്പാൾ